സംയുക്ത പ്രസ്താവന

നേതാക്കൾ സജീവം

മത്സരം ഇന്ന് ഐലീഗ് കിരീടം ഗോകുലം കേരളാ എഫ്

ഇരു രാജ്യങ്ങളു്ം തമ്മിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കിടെ അഞ്ച് കരാറുകൾ ഒപ്പിട്ടു

ടി കായികരംഗം ദുരന്തനിവാരണം എൻ

സന്ദർശനത്തിന് സമാപനം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ക് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി ആരോഗൃം ഊർജ്ജം വൃാപാരം അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ കൈവരിച്ച പുരോഗതി ഇരുനേതാക്കളും വിലയിരുത്തി നിരവധി വികസന പദ്ധതികൾക്കും ഇരുനേതാക്കളും സംയുക്തമായി തുടക്കം കുറിച്ചു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മേഖലയ്ക്കാകെ മാതൃകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്കു ശേഷം പുറപ്പെടുവിച്ച അറിയിച്ചു സംയുക്ത പ്രസ്താവന ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി സൌഹാർദ്ദത്തിന്റെ അമ്പതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അനുസ്മരണ സ്റ്റാമ്പുകൾ ഇരുരാജ്യങ്ങളും പുറത്തിറക്കി

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിൽ സേവനം നടത്തുന്ന മൂന്നാമത്തെ ട്രെയിനാണിത് മിതാലി എക്സ്പ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ ആഴ്ചയിൽ രണ്ടു സർവ്വീസുകളാവും നടത്തുക മേഖലയിലെ വിനോദസഞ്ചാരത്തിന് തീവണ്ടി മുതൽക്കൂട്ടാകും

എ ഇയിൽ സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ ഡെസേർട്ട് ഫ്ളാഗ്ന് സമാപനമായി

എ

ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് സൌദി അറേബൃ ബഹ്റൈൻ യു എ ഇ എന്നീ രാജ്യങ്ങളുടെ വ്യോമസേനകൾ അഭ്യാസത്തിൽ പങ്കെടുത്തു

പ്രമുഖ പാർട്ടികളുടെയും മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്ത് സജീവമാണ് വിശദാംശങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

ഡി എ

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

എഫിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വേണ്ടി പ്രചാരണം നടത്തും

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പ്രചാരണത്തിനായി കേരളത്തിൽ സജിദ്ധമാണ്

ഡി

പ്രധാനമ്പ്രി നരേന്ദ്രമോദി മറ്റെന്നാൾ പാലക്കാട് എൻ

ന്യൂസ്ഡസ്ക് ആകാശവാണി

തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലിന് എം

കേന്ദ്രഭരണപ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ വിദൂര ദീപുകളിൽ ഗതാഗത സൌകര്യം വിപുലമാക്കാൻ കപ്പൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

അടുത്ത മാസം നാലാം തീയതിയാണ് ഈസ്റ്റർ

എ അരുൺ നരാങിനെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവർ ആക്രമിച്ച സംഭവത്തെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അപലപിച്ചു സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പരമ്പരയിൽ ഓരോ ജയം നേടി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്

ന്ന്രീകൃത്ത ഡ്യൂറന്റ് കപ്പും ഗോകുലം കരസ്ഥമാക്കിയിരുന്നു

സംഭവത്തെ ലോകരാഷ്ട്രങ്ങൾ ശക്തരായി അപലപിച്ചു

സമയബുസ്ടിതമായി സഹായവും വാക്സിൻ ഡോസുകളും ലഭ്യമാക്കിയ്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു